മൂന്നും നാലും പാത സംബന്ധിച്ചു സ്ാധ്യതാ പഠന റിപ്പോർട്ടിന് മന്ത്രിസഭാ അനുമതി

ബഷീർ കാറിടിച്ച് മരിച്ച കേസിൽ ന് ശ്രീറാം വെങ്കിട്ടരാമൻ്റെ ജാമ്യം റദ്ദാക്കണമെന്ന ഗവൺമെന്റ് ഹർജി ഹൈക്കോടതി് തള്ളി

ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി

വടക്കൻ കേരളത്തിൽ മഴ കനക്കുന്നു

മുഖ്യമന്ത്രി ബാങ്കുകളുടെ സമിതിയുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം അതുവരെ റവന്യൂ റിക്കവറി നടപടികൾ മരവിപ്പിക്കാനും ചർച്ചയിൽ തീരുമാനമായി

പുനക്രമീകരിക്കാത്ത വായ്പകളിൽ ജപ്തി നടപടി ഉണ്ടാകില്ലെന്നും വായ്പാരീതികൾ പരിശോധിക്കാൻ ജില്ലകളിൽ ഉപസമിതികൾ രൂപീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി

കൂടുതൽ വിവരങ്ങളുമായി ലിഖിത

മീ ദൂരത്തിൽ സെമീ ഹൈസ്പീഡ് ട്രെയിനു കൾക്കായി നിലവിലുള്ള ഇരട്ട പാതയ്ക്കു പുറമെ മൂന്നും നാലും പാത എന്നത് സംസ്ഥാനത്തിന്റെ മുൻഗണനാ പട്ടികയിലുള്ള പദ്ധതിയാണ്

മീ വരെ വേഗത്തിൽ ട്രെയിനു കൾ സഞ്ചരിക്കുന്നതിനായി പുതിയ രണ്ട് പാതകൾ നിർമിക്കാനാണ് ഉദ്ദേശിക്കുന്നത് കാസർഗോ ഡിനും തിരൂരിനുമിടയിൽ നിലവിലുള്ള പാതയ്ക്ക് സമാന്തരമായാണ് പുതിയ പാതകൾ നിർമിക്കുക തിരൂർ മുതൽ തിരുവനന്തപുരം വരെ നിലവിലുള്ള പാതയിൽ നിന്ന് മാറി ജനവാസം കുറഞ്ഞ മേഖലകളിൽ കൂടിയാണ് പുതിയ പാതകൾ നിർമിക്കുക

ജില്ലയിലെ ചെറുകിട വ്യാപാരികൾക്കും കർഷകർക്കും ഏറെ ഉപകാരപ്രദമാകുന്നതാണ് തീരുമാനം കേരള പുനർനിർമാണ വികസന പരിപാടിയുമായി ബന്ധപ്പെട്ട പദ്ധതി നിർദേശങ്ങൾക്കും മന്ത്രിസഭ അംഗീകാരം നൽകി

ജാമ്യം റദ്ദാക്കണമെന്ന ഗവൺമെന്റിന്റെ ഹർജിയിൽ വെളളിയാഴ്ച വിശദമായ വാദം കേൾക്കുമെന്നും കോടതി വ്യക്തമാക്കി ഇതുമായി ബന്ധപ്പെട്ട് ശ്രീറാമിന് ഹൈക്കോടതി നോട്ടീസ് അയച്ചു

കേസ്സിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിൽ പൊലീസ് വീഴ്ച വരുത്തിയതായി കോടതി ചൂണ്ടിക്കാട്ടി

ബഷീർ വാഹനമിടിച്ച് മരിച്ചതിനെകുറിച്ച് പഴുതില്ലാത്ത അന്വേഷണം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി പിജയൻ

അത്തരത്തിൽ ഇടപെടുക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു

ബഷീറിന്റെ അപകടമരണത്തിൽ പോലീസിന്റെ വീഴ്ച പ്രത്യേകം അന്വേഷിക്കുമെന്നും ശ്രീ

മാധ്യമപ്രവർത്തകരുടെ സുരക്ഷയ്ക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്ന കാര്യം ഗവൺമെന്റ് ആലോചിച്ചുവരുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു

ബഷീറിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ശ്രീറാം വെങ്കിട്ടരാമന ് ജാമ്യം ലഭിച്ചത് സി

എമ്മും പോലീസും മുഖ്യമന്ത്രിയുടെ ഓഫീസും തയ്യാറാക്കിയ തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണെന്ന് കെ

സി

ഗവൺമെന്റ് ക്ക്ഹെക്കോടതിയെ സമീപിച്ചാലും അത്ഭുതമൊന്നും സംഭവിക്കാൻ പ്രോകുന്നില്ലെന്നും ശ്രീ മുല്ലപ്പള്ളി തിരുവന്തപുരത്ത് മാധ്യങ്ങളോട് പ്രറഞ്ഞു

ശ്രീറാം വെങ്കിട്ടരാമൻ സസ്പെൻഷനിലായ ഒഴിവിലാണ് നിയമനം

അല്ലാത്ത പക്ഷം കോടതിയലക്ഷ്യത്തിന് ഹർജി നൽകുമെന്ന് സഭാനേതൃത്വം ചീഫ് സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ മുന്നറിയിപ്പ് നൽകി സഭാ തർക്കത്തിൽ ഓർത്തഡോക്സ് വിഭാഗത്തിന് അനുകൂലമായ സുപ്രീംകോടതി വിധി നടപ്പാക്കുന്നതിനു പകരം സമവായ ചർച്ചകളിലൂടെ പ്രശ്ന പരിഹാരത്തിന് ശ്രമിക്കുന്നത് കോടതിയലക്ഷ്യമാണെന്ന് ഓർത്തഡോക്സ് വിഭാഗം പറഞ്ഞു

ഉപരാഷ്ട്രപതി എം വെങ്കിയ്യനായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പി നേതാവ് എൽ കെ അദ്വാനി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ്സിംഗ് തുടങ്ങിയ നിരവധി പ്രമുഖർ സംസ്കാര ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു രാജ്യത്തിനകത്തും പുറത്തുമുള്ള നിരവധി നേതാക്കൾ സുഷമാസ്വരാജിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി

അതി തീവ്രമഴയ്ക്കുളള സാധ്യത മുൻനിർത്തി നാളെ ഇടുക്കി മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ റെഡ് അലർട്ട് ഉണ്ട് തൃശൂർ പാലക്കാട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ മറ്റന്നാളും ഇടുക്കി കോഴിക്കോട് ജില്ലകളിൽ ശനിയാഴ്ചയും കേന്ദ്രകാലാവസ്ഥാ വിഭാഗം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എറണാകുളം മഴ കനത്തമഴയെ തുടർന്ന് എറണാകുളം ജില്ലയിലെ പല പ്രദേശങ്ങളിലും വെള്ളം കയറി കൊച്ചി നഗരത്തിലെ പ്രധാന റോഡുകളെല്ലാം വെള്ളത്തിന് അടിയിലായതിനാൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായി അടിയന്തിര സാഹചര്യം നേരിടാൻ പ്രത്യേക കൺട്രോൾ റും തുറന്നിട്ടുണ്ട്

പാലക്കാട് മഴ പാലക്കാട് ഉച്ചക്ക് ശേഷം ഉണ്ടായി ക്നത്ത മഴയിലും കാറ്റിലും വിവിധയിടങ്ങളിൽ മരങ്ങൾ പൊട്ടിമ്പീണ് ഗതാഗതം തടസ്സപ്പെട്ടു യാക്കര സിവിൽസ്റ്റേഷൻ റോഡ് പുതുപ്പരിയിട്ടരം എന്നിവിടങ്ങളിലാണ് മരങ്ങൾ പൊട്ടി റോഡിലേക്ക് വീണത് പ പുതുപ്പരിയാരത്ത് കാറിന്റു മുകളിലേക്കാണ് മരം വീണതെങ്കിലും ആളപായമില്ല കോഴിക്കോട് മഴ കോഴിക്കോട് ജില്ലയിൽ ഇന്നും ശക്തമായ മഴ തുടരുന്നു

പുഴയോരവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് അഗ്നിശമന വിഭാഗം മുന്നറിയിപ്പ് നൽകി ചാലിയാർ കരകവിഞ്ഞതിനെ തുടർന്ന് മാവൂരിൽ മൂന്ന് വീട്ടുകാരെ മാറ്റി പാർപ്പിച്ചു ചാലിപ്പുഴ നിറഞ്ഞ് ചെമ്പുകടവ് പാലം വെളളത്തിനടിയിലായതോടെ ചെമ്പുകടവ് അടിവാരം റൂട്ടിൽ വാഹന ഗതാഗതം സ്തംഭിച്ചു കണ്ണൂർ മഴ കണ്ണൂർ ജില്ലയിൽ കനത്ത മഴ തുടരുന്നു

പലയിടത്തും റോഡിൽ വെള്ളം കയറി

ചേർത്തല ആഞ്ഞിലിപ്പാലത്തിനു സമീപവും വയലാറിലുമാണ് റെയിൽപ്പാതയിൽ മരം വീണത്

ബോട്ടിന്റെ അടിഭാഗം തകർന്നതിനെ തുടർന്നായിരുന്നു അപകടം

ഐ എസ്

ആദ്യമായാണ് ദേശീയ കായികമേള കേരളത്തിൽ നടക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു